ഷീ ജിൻ പിങ് ചർച്ച ഇന്ന് ചരക്കുസേവന നികുതിയിൽ വരുത്തേണ്ട് മാറ്റങ്ങൾ പരിശോധിക്കാൻ

ജാബിറിനും സ്വർണം ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ സെമി ഫൈനൽ മത്സ

തമിഴ്നാട്ടിലെ മാമല്ലപുരത്ത് ഇന്ത്യ ചൈന അനൌപചാരിക ഉച്ചകോടി യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഇന്ന് നേരിട്ട് ചർച്ച നടത്തും

പിന്നീട് ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധിതല ചർച്ച നടക്കും ഉച്ചയോടെ ഷീ ജിൻ പിങ് ചൈന്നൈ വിമാ നത്താവളത്തിലെത്തിയശേഷം നേപ്പാളിലേക്ക് യാത്ര തിരിക്കും ഭീകരപ്ര വർത്തനങ്ങളും തീവ്രവാദവും ഒറ്റക്കെട്ടായി നേരിടാൻ ഇന്നലെ രണ്ടര മണിക്കൂറോളം നടത്തിയ അനൌപചാരിക ചർച്ചയിൽ നരേന്ദ്രമോദിയും ഷീ ജിൻ പിങും പ്രതിബദ്ധത വൃക്തമാക്കി

നിക്ഷേപത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനും വ്യാപാര തോത് ഉയർത്താനും മാർഗ്ഗങ്ങളും അവർ ആരാഞ്ഞു

ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സമഗ്ര നിർദ്ദേശങ്ങളും വരുമാന വർദ്ധനയ്ക്കും ഭരണ സംവിധാനം കുറ്റമറ്റതാക്കാനും ഉതകുന്ന നടപടികൾ നിർദ്ദേശിക്കാനുമാണ് ഉദ്യോഗസ്ഥതല സമിതി രൂപീകരിച്ചത് അഞ്ചംഗങ്ങൾ കേന്ദ്ര ഉദ്യോഗസ്ഥരും ഏഴംഗങ്ങൾ സംസ്ഥാന ഉദ്യോഗസ്ഥരുമായിരിക്കും കൊച്ചി ജല മെട്രോയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയ ത്തിന്റെ അനുമതി ലഭിച്ചു

കൊച്ചി കപ്പൽ ശാലയിൽ നിർമ്മിക്കുന്ന ബോട്ടുകൾ ഉപയ്യോഗിച്ചായിരിക്കും ജല മെട്രോ സർവ്വീസ്

കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് രണ്ടു കമ്പനി കളെ തെരഞ്ഞെടുത്തു എഡിഫൈസ് എഞ്ചിനിയറിംഗ് വിജയ് സ്റ്റീൽസ് എന്നീ കമ്പനികൾക്കാണ് ചുമതല തീരുമാനത്തിന് ഇന്ന് മരട് നഗരസഭ അംഗീകാരം നൽകും കെട്ടിടങ്ങൾ പൊളിക്കുന്നതിൽ വിദഗ്ദ്ധനായ എസ് ബി സർവാതെ ഇന്നലെ ഫ്ളാറ്റുകൾ സന്ദർശിച്ചു നിയന്ത്രിത സ്ഫോട നത്തിലൂടെയാണ് ഫ്ളാറ്റുകൾ പൊളിക്കുകയെന്നും അതിൽ ആശങ്കപ്പെടേ ണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന തിലെ ആശങ്ക പുരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുഖ്യമ ന്ത്രിക്ക് നിവേദനം നൽകി കോഴിക്കോട് കൂടത്തായ് ദുരൂഹമരണ കേസിൽ പ്രതികളെ തെളിവെടുപ്പിനുശേഷം വടകര റൂറൽ പൊലീസ് ഓഫീസിലെത്തിച്ചു ഇന്നലെ പകൽ മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പിന് ശേഷം രാത്രിയോടെയാണ് വടകരയിലെത്തിച്ചത്

അടുത്ത ബുധനാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ സത്യ വാങ്മൂലം നൽകിയില്ലെങ്കിൽ കോർപറേഷൻ കൌൺസിൽ പിരിച്ചുവിടാൻ ഗവൺമെന്റിന് നിർദ്ദേശം നൽകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ് ദേശീയ നിയമ സേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി ദേശീയ ലോക് അദാലത്ത് നടത്തും കോടതികളിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകളിൽ മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്ന പരി ഹാരമുണ്ടാക്കാനാണ് ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നത് കോടതിക ളിൽ ഇതിന് പ്രത്യേക ബൂത്തുകളും സഹായ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്

സ്പരം വിട്ടു നൽകാൻ എൽ ഡി എഫും യൂ ഡി എഫും രഹസ്യധാരണ യുണ്ടാക്കിയതായി ബി ജെ പി ദേശീയ നിർവാഹകസമിതി അംഗം പി

അഴിമതിക്കാരെ രക്ഷിക്കുന്ന ശ്രമ മാണ് ഇരു മുന്നണികളും നടത്തുന്നതെന്നും ശരണം വിളിക്കുന്നവരെ ജയി ലിൽ അടയ്ക്കുന്നവരാണ് കേരളം ഭരിക്കുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു

അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയതായി കെ പി സി സി മുൻ പ്രസിഡന്റ് എം

ഹസ്സൻ അരൂരിൽ കുറ്റപ്പെടുത്തി സംസ്ഥാന ഗവൺ മെന്റ് അധി കാര ദുർവിനിയോഗമാണ് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തുന്നതെന്നും ഇടത് ഭരണത്തിനെതിരായ ജനവിധി ഉപതെർഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഹസ്സൻ പറഞ്ഞു ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക മറിയം ത്രേസ്യയെ നാളെ മാർപാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കും റോമിലെ മേജർ ബസലിക്കയിൽ പ്രത്യേക പ്രാർത്ഥനാശുശ്രൂഷയ്ക്കുശേഷമായിരിക്കും മറിയം ത്രേസൃയ്ക്കൊപ്പം അഞ്ചുപേരെ വിശുദ്ധരായി ഫ്രാൻസിസ് മാർപാപ്പ പ്രഖ്യാപിക്കുന്നത്

കേരളത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലെത്തുന്ന നാലാമത്തെ ആളാണ് മറിയം ത്രേസ്യ

് റാഞ്ചി ദേശീയ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മലയാളി താരങ്ങളായ പി

ചിത്രയും എം

കേരളത്തിന്റെ ലോങ്ജംപ് താരം എം

മത്സരങ്ങൾ ഇന്ന് മെഡൽ ഉറപ്പാക്കി ഇന്ത്യൻ താരങ്ങളായ മേരികോം മഞ്ജുറാണി ജമുന ബോറോ ലൌലിന എന്നിവർ ഇന്ന് റിംഗിലിറങ്ങും

മഞ്ജുറാണി തായ്ലന്റ് താരത്തെയും ലൌലിനു ചൈനീസ് താരത്തെയും ബോറോ ചൈനീസ് തായ്പേയ് താരത്തെയുമാണ് നേരിടുന്നത്

തമിഴ്നാട് ഉൾപ്പെടുന്ന ശക്തമായ എ ഗ്രൂപ്പി ലാണ് കേരളത്തിന്റെ സ്ഥാനം പുതുച്ചേരി കർണാടകം തെലങ്കാന എന്നി വയാണ് മറ്റു ടീമുകൾ

അവയ വങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ട് വിദ്യാർത്ഥിക്ക് പരി ക്കേറ്റ സംഭവത്തിൽ ഗവൺമെന്റ് നിയോഗിച്ച മൂന്നംഗ വിദഗ്ദ്ധ സമിതി മുൻസിപ്പൽ സ്റ്റേഡിയത്തിലെത്തി തെളിവെടുത്തു

കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് മുൻ പ്രസിഡന്റ് ടി

മാത്യുവിനെ പുറത്താക്കി കൊച്ചിയിൽ ഇന്നലെ ചേർന്ന വാർഷിക ജന റൽ ബോഡി യോഗമാണ് പുറത്താക്കൽ തീരുമാനമെടുത്തത് കൊച്ചി മറൈൻ ഡ്രൈവിൽ കെ സി

പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു മൂന്നു ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മിന്നലിന് സാധ്യതയു ണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്

കർണാടകയിലെ ജാൽസൂരിൽ ഇന്നലെ വൈകിട്ട് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് കാസർകോട്ടെ ഒരു കുടുംബത്തിലെ രണ്ടുപേർ മരിച്ചു കുട്ടികളടക്കം നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ബണ്ടാൾ സ്വദേശി മജീദ് മൊഹമ്മദ് സാദിഖ് എന്നിവരാണ് മരിച്ചത് ഗുരു തരമായി പരിക്കേറ്റവരെ സുള്ള്യായിലെ സ്വകാരൃ ആശുപത്രിയിൽ പ്രവേ ശിപ്പിച്ചു

ആലപ്പുഴയിൽ ഇന്നലെ രാത്രി വാഹനാപകടങ്ങളിൽ രണ്ടു യുവാ ക്കൾ മരിച്ചു പാതിരപ്പള്ളിയിൽ സ്കൂട്ടർ കണ്ടെയ്നർ ലോറികൾക്കിട യിൽപെട്ട് കലവൂർ സ്വദേശി പ്രഭാതും മണ്ണഞ്ചേരിയിൽ ബൈക്ക് പോസ്റ്റിൽ ഇടിച്ച് കാളാച്ചേരിയിൽ ഉമേഷുമാണ് മരിച്ചത്

കെ എസ് ആർ ടി സി ബസിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ പാലക്കാട് കൊല്ലങ്കോട്ട് പൊലീസ് പിടികൂടി തൃശൂർ സ്വദേശി കളായ സന്തോഷ് രാജീവ് എന്നിവരെ രണ്ടു കിലോ കഞ്ചാവോടെയാണ് പിടികൂടിയത്

ഇടുക്കി കുണ്ട്ള ഡാമിന്റെ ഒരു ഷട്ടർ രാവിലെ തുറക്കും മാട്ടു പ്പെട്ടി ജലസംഭരണിയിലേക്കാണ് വെള്ളം ഒഴുക്കിപിടുന്നത്

കാലഹരണപ്പെട്ട മരുന്നുകൾശേഖരിച്ച് സംസ്കരിക്കുന്ന പദ്ധ തിക്ക് ഇന്ന് പാലക്കാട് ജില്ലയിൽ തുടക്കമാകും സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ സഹകരണത്തോടെ മരുന്ന് വ്യാപാരികളുടെ സംഘ ടനയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി മുഴുവൻ മെഡി ക്കൽ സ്റ്റോറുകളിലും മെഡിസിൻ ബിൻ സ്ഥാപിക്കും

ഇടുക്കിയിലെ ഗോത്രവർഗ്ഗ സങ്കേതങ്ങളിൽ പുതുതായി സർവ്വീ സിൽ ചേർന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ ഗോത്രായനം പരി ശീലന പരിപാടി ഇന്നു തുടങ്ങും മറയൂർ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തുക ളിലെ പട്ടിക ഗോത്രവർഗ്ഗ സങ്കേതങ്ങളിലാണ് പരിശീലനം നൽകുന്നത്

തൊഴിലാളികളുടെ പണമിടപാടുകൾ ബാങ്ക് വഴിയാക്കിയതിനെതിരെ വയനാട്ടിലെ ഹാരിസൺസ് എസ്റ്റേറ്റ് സംയുക്ത തൊഴിലാളി സമരത്തിന് താല്ക്കാലിക പരിഹാരമായി അടുത്ത ശമ്പള തീയ്യതി വരെ പണമിടപാടുകൾ തൊഴിലാളികളുടെ കൈവശം തന്നെ നൽകാൻ തീരുമാനമായി